തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇന്ന് മുതൽ പത്രിക സമർപ്പിക്കാം

സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്

കൂടുതൽ വിവരങ്ങളുമായി സ്ുനീഷ്

പ്രാധാന്യമുള്ളതായാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തീവ്രവാദം ആഗോള കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾക്ക് പ്രധാനമന്ത്രി വ്യതിയാനം അഭിസംബോധനയിൽ പ്രത്യേക ഊന്നൽ നൽകുമെന്ന് വിദഗ്ധർ പറയുന്നു അന്താരാഷ്ട്ര റാങ്കിംഗിലും സൂചികകളിലും ഇന്ത്യ സ്ഥാനം ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വികസനം കാലാവസ്ഥാ വൃതിയാനം തുടങ്ങി നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇന്ത്യയ്ക്കുള്ള സ്വാധീനം ക്രിയാത്മകമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്ന് യു എൻ ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയിദ് അക്ബറുദ്ദീൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗൾഫ് മേഖലയ്യിൽ സമാധാനം നിലനിർത്തുന്നതിന് ഇന്ത്യ പ്രത്യേക പ്രാധാന്യം നൽക്കുന്നതായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ അറിയിച്ചു

ചബാഹർ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇന്ത്യയുടെ എല്ലാവിധ സഹകരണവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു സൈപ്രസ് പ്രസിഡന്റുമായും ഗ്രീക്ക് പ്രധാനമന്ത്രിയുമായും ശ്രീ മോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

ഡി

ആദ്യ മണിക്കൂർ മുതൽ എൽ

എഫിന്റെ മാണി സി

തുടർന്ന് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി മണ്ഡലത്തിലെ മുൻ എം

മാണിയോട് മൂന്നു തവണ മത്സരിച്ച് പരാജയപ്പെട്ട എൻ

പി നേതാവാണ് മാണി സി കാപ്പൻ

മാണിയായിരുന്നു പാലയുടെ എം

ഡി എഫിന്റെ ജോസ് ടോം ആണ് രാം സ്ഥാനത്തുള്ളത്

എ യുടെ എൻ ഹരി മൂന്നാം സ്ഥാനത്തും തുടരുന്നു

കേരളത്തിന് പുറമെ ചുത്തീസ്ഗഢ് ഉത്തർപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്

തിങ്കളാഴ്ചയായിരുന്നു ഈ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത്

വട്ടിയൂർക്കാവ് കോന്നി അരൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വൃത്യാസം ശക്തമാണ്

ഡി

ബ്ലിജെപി സ്ഥാനാർത്ഥികളെ ഇന്ന് കേന്ദ്രനേതൃത്വം പ്രഖ്യാപിച്ചേക്കുള്ളൂ

ഇതിന് പിന്നാലെയാണ് കോടതിയുടെ പരാമർശം

യഥാർത്ഥ രാജ്യതന്ത്രജ്ഞനെയും സുഹൃത്തിനെയുമാണ് ഇന്ത്യക്ക് നഷ്ടമായതെന്നും ശ്രീ

ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച വൃക്തിയായിരുന്നു ജാക്ക് ഷിറാക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു

കൂടൂതൽ വിവരങ്ങളുമായി സുനീഷ്

ഇന്ത്യ ഉഗാ ബന്ധം സൌത്ത് സൌത്ത് സഹകരണത്തിന്റെ പാഠപുസ്തകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ജപ്പാനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി ട്വീറ്ററിലൂടെ അറിയിച്ചു സിങ്കപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണൻ ക്രൊയേഷ്യൻ ധനകാര്യമന്ത്രി ഗോർഡാൻ ഗ്രിളിക്ക് റാഡ്മാൻ യൂറോപ്യൻ യൂണിയൻ വിദേശനയ നേതാവ് ഫെഡറിക്ക മൊഹേറിനി മാലദ്ധീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് എന്നിവരുമായും ശ്രൂീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കുന്നതോടെയാണ് പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത് അടുത്തമാസം നാലുവരെ പത്രിക സമർപ്പിക്കാം ഒക്ടോബർ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന ഒക്ടോബർ ഏഴാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

വികസനത്തിന്റെ പുതിയ ജീവശ്വാസം കശ്മീരി ജന്തൃയ്ക്ക് ലഭിച്ചതായും മന്ത്രി പറഞ്ഞു

ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ കർഷ്ട്കർ ് ഉൾപ്പെടെയുള്ളവർ തുറസായ സ്ഥലങ്ങളിൽ പോകരുത്തെന്ന് ഗ്വൺമെന്റ് നിർദ്ദേശം നൽകി ഗംഗ ഭാഗ്മതി സോൺ ് ഉൾപ്പെടെയുള്ള നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്

അത്തരം വാർത്തകൾ തെറ്റാണെന്നും ബാങ്ക് അധികൃതർ ഇത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുമെന്നും കൂടാതെ അറിയിച്ചു

ബാങ്കിന് അത്തരം ഒരു നീക്കവുമില്ലെന്നും ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു

നൂറിലധികം പേർക്ക് പരിക്കേറ്റതായി ഇന്തോനേഷ്യൻ ദുരന്ത ലിപ്പൂക്രണ ഏജൻസി അറിയിച്ചു